ഓസ്ട്രിയൻ എഴുത്തുകാരൻ പീറ്റർ ഹന്റ്കേയ്ക്കും പോളിഷ് എഴുത്തുകാരി വോൾഗ തൊക്കാർച്ചുക്കിനും സാഹിത്യ നൊബേൽ

ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം വിളിച്ചോരുന്ന സ്വീകരണമാണ് ചൈനീസ് പ്രസിഡന്റിന് നൽകുക കൂടുതൽ വിവരങ്ങളുമായി ഉദ്യകുമാർ

ഒരുക്കിയിട്ടുള്ളത്

നാളെ പ്രത്യേക വിമാനത്തിൽ ചെന്നൈയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അവിടെ നിന്ന് മഹാബലിപുരത്തേക്ക് ഹെലികോപ്ടറിലാവും പോവുക ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് നാളെ ഉച്ച തിരിഞ്ഞ് ചെന്നൈയിലെത്തും

ശനിയാഴ്ച ഇരുനേതാക്കളും ചർച്ച നടത്തും വ്യാപാരം പ്രതിരോധം സുരക്ഷ ഭീകരവാദം അന്താരാഷ്ട്ര രംഗത്തെ സഹകരണം തൂടങ്ങിയവ ഇരുനേതാക്കളും തമ്മിലുള്ള ചർച്ചയ്ക്ക് വിഷയമാകും

ഇൌവർഷം ആഗസ്റ്റ് രണ്ടിനാണ് നിയന്ത്രണമേർപ്പെടുത്തിയത് ഈ തീരുമാനം കാശ്മീർ സന്ദർശിക്കുന്ന വിനോദ് സഞ്ചാരികൾക്ക് കൂടുതൽ പ്രയോജനപ്രദമാകും

ജമ്മുവിൽ പണ്ഡിറ്റ് പ്രേംനാഥ് ഭട്ട് അമച്ചൂർ ജേർണലിസ്റ്റ് അവാർഡ്ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു അര മണിക്കൂർ നീണ്ട വെടിവയ്പിൽ ആൾനാശമുണ്ടായില്ലെന്ന് പ്രതിരോധ വക്താവ് അറിയിച്ചു

ക്രേ്ള ബാങ്ക് യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിലെ ഏറ്റവും പ്രവലിയ് ബാങ്കിംഗ് ശൃംഖലയായി മാറും ജില്ലാ സഹകരണ ബ്ലിങ്കുകളെ കേരള സംസ്ഥാന സഹകരണ ബാങ്കിൽ ലയിപ്പിച്ചാണ് കേരള ക്ക് രൂപീകരിക്കുന്നത് ചില വ്യവസ്ഥകൾക്ക് വിധേയമായാണ് കേരള ബാങ്കിന് റിസർവ് ബാങ്ക് അനുമതി നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിലവിലുള്ള കേസുകളുടെ തീർപ്പിന് അനുസരിച്ചായിരിക്കും ബാങ്ക് രൂപീകരിക്കുകയെന്ന് മുഖൃമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

നിക്ഷേപകരുടെ ആശങ്ക ഉടൻ തന്നെ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ക്രമക്കേടുകളെ തുടർന്ന് വിവാദത്തിലായ പി

സി ബാങ്കിന്റെ ഇടപാടുകൾ ധനമന്ത്രാലയം പരിശോധിച്ച് വരികയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്താൻ തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു

മനുഷ്യാനുഭവങ്ങളുടെ പ്രതിപാദനത്തിൽ കാണിച്ച ഭാഷാ വൈവിധ്യത്തിനാണ് ഹാൻകേയ്ക്ക് സമ്മാനം നൽകിയത് അതിരുകളെ ലംഘിക്കുന്ന ജീവിത സങ്കല്പങ്ങളുടെ വിവരണത്തിന്റ്റിങ്ങ് ടോക്കർ ഷുക്കിനെ അവാർഡിനർഹയാക്കിയത്

മണികുമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും

സുപ്രീം കോടതി ജഡ്ജിയായി സ്ഥാനക്കയറ്റം ലഭിച്ച ജസ്റ്റിസ് ഋഷികേശ് റോയി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് ജസ്റ്റിസ് മണികുമാറിന്റെ നിയമനം

നവജാത ശിശു മരണവും പ്രസവാനന്തരമുളള മരണങ്ങളും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും മികച്ച പരിരക്ഷ ഉറപ്പു വരുത്തും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്നും മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

ആർ ഒ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കേന്ദ്ര മാനവവിഭവശേഷി വികസ്പ് മുന്തി രമേഷ് പൊക്രിയാൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളെ രാജ്യ പുരോഗതിയ്ക്ക് മികച്ച സംഭാവനകൾ നൽകാൻ പ്രാപ്പ്ത്രാക്കുകയാണ് ലക്ഷ്യം കൂടുതൽ വിവരങ്ങളുമായി ്ഉദയകുമാർ

പദ്ധതിയുടെ ഭാഗമായി വിവിധ സെമിനാറുകളും പരിശീലന കളരികളും സംഘടിപ്പിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനം കാർഷിക ഉൽപാദ്നം തുടങ്ങി രാജ്യ പുരോഗതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ വിദഗ്ധരുമായി ഈ വിദ്യാർത്ഥികൾ സംവാദം നടത്തും രാജ്യത്തിന്റെ മികച്ച ഭാവിയ്ക്ക് രൂപം നൽകേണ്ട യുവജനങ്ങളെ ശരിയായ ദിശയിലേക്ക് വഴിതെളിക്കുന്നതിനും രാജ്യത്തിന്റെ കടിഞ്ഞാൺ ശക്തമായ കരങ്ങളിലേയ്ക്ക് ഏൽപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് ധ്രുവ് പദ്ധതിയ്ക്ക് ഗവൺമെന്റ് രൂപം നൽകിയിരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾക്ക് ഐ എസ്

ഒയുടെ മുതിർന്ന ശാസ്ത്രജ്ഞൻമാർ വിദഗ്ധ പരിശീലനം നൽകുമെന്ന് ഐ എസ് ആർ

ശിവൻ പറഞ്ഞു

തുർക്കിയുടെ ഈ നടപടി മേഖലയിൽ അസ്വസ്ഥത സൃഷ്ടിക്കുമെന്ന് വിദേശകാരൃ മന്ത്രാലയം പുറപ്പെടുവിച്ച വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ജനജീവിതം ദുഷ്കരമാക്കുന്ന തുർക്കിയുടെ നട്പടി അവസാനിപ്പിക്കാനും സിറിയയുട്ടെ പരമാധികാരത്തെ അംഗീകരിക്കാനും തയ്യാറാകണം

ചിദംബരത്തിനും മകനും എം പിയുമായ കാർത്തി ചിദംബരത്തിനും നൽകിയ ചിദംബരത്തിനും നൽകിയ മുൻകൂർ ജാമ്യാ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു

കഴിഞ്ഞ മാസം അഞ്ചിനാണ് എയർസെൽ മാക്സിസ് കേസിൽ പ്രത്യേക കോടതിയിൽ നിന്നും ഇരുവർക്കും മുൻകൂർ ജാമ്യം ലഭിച്ചത്

എക്സ് മീഡിയ കേസിൽ ചിദംബരം ഇപ്പോൾ ജയിലിലാണ്

രണ്ടാം സീഡ് തുർക്കിയുടെ ബുസനാസ് ചകിരോഗ്ളുവാണ് സെമിയിൽ മേരികോമിന്റെ എതിരാളി

ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരെ തുടർച്ചയായ രണ്ടാം സെഞ്ച്വറിയ്ാണ് മായങ്ക് നേടിയത്